തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും സ്ഥിതി ഗുരുതരം

രോഗികൾ

കോവിഡ് പ്രതിരോധ പ്ര്വർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ന് മുഖ്യമന്ത്രി വിളിച്ചുസ്ർവകക്ഷിയോഗം ഇന്ന

മരണം ആറ് ലക്ഷം കടന്നു അമേരിക്കയിൽ ഇന്നലെ മാത്രം ആയിരത്തിലേറെ മരണം

അസമിൽ പ്രളയക്കെടുതി രൂക്ഷം

സ്ഥിതിഗതികൾ വിലയിരുത്തി

രോഗമുക്തി നേടിയവരുടെ എണ്ണം എട്ട് ലക്ഷത്തോടടുക്കുന്നു

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തിലധികം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്

എന്നാൽ രോഗമുക്തി നേടുന്നവൃത്തിട്ട് എണ്ണം വർദ്ധിച്ചത് രാജ്യതലസ്ഥാനത്തിന് ആശ്വാസം ന്ന്ൽക്കുന്നു

എന്നാൽ ഗവർണറും മറ്റ് ഉദ്യോഗസ്ഥരുമായി ഇവർ സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചു

സംസ്ഥാനത്തെ നിലവിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു സെമസ്റ്റർ പരീക്ഷ ഒഴിവാക്കിയ എല്ലാ വിദ്യാർത്ഥികളേയും അടുത്ത സെമസ്റ്റിലേക്ക് പാസാക്കിയിട്ടുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനുള്ള വിശദമായ മാർഗരേഖ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചു

വഴിയോര കച്ചവടക്കാർക്കായി ആവിഷ്കുരിച്ച ് ആത്മ നിർഭർ നിധിയുടെ പുരോഗതിയും യോഗം വ്വില്യിരു്തി

കേന്ദ്രമന്ത്രിമാരായ നിർമുല് സീതാരാമൻ ഹർദീപ് സിംഗ് പുരി രാംവിലാസ് പാസ്വാൻ പ്രിുടങ്ങിയവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു

വ്യാപാരമേഖലയിലെ വിശ്വാസം നിലനിർത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ബ്രിക്സ് രാജൃങ്ങളിലെ വൃാപാരമന്ത്രിമാരുടെ പത്താമത് യോഗത്തെ വെർച്ചൽ സംവിധാനത്തിലൂടെ അഭിസംബോധന പറഞ്ഞു

ലോകം കടന്നു പോകുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം പിന്തുണയ്ക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ നാം നിർബന്ധിതരാകുകയാണെന്ന് പിയൂഷ്ഗോയൽ ശ്രീ

നടപ്പു സാമ്പത്തിക വർഷത്തിലെ പദ്ധതിച്ചെലവ് വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇത്തരം അസാധാരണ സാഹചരൃങ്ങളിൽ അസാധാരണമായ പ്രയത്നവും കൂട്ടായ്മയും കൊണ്ട് മികച്ച ഫലം നോടാനാവുമെന്നും ശ്രീമതി നിർമല സീതാരാമൻ വ്യക്തമാക്കി

ദുരിതം ് നേരിടുന്ന ജനങ്ങൾക്ക് സുരക്ഷയും ഭക്ഷണവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അഞ്ച് കോവിഡ് മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു

പ്രധാന രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തി നടത്തുന്ന യോഗത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപനവും ചർച്ചയാകുമന്നാണ് സൂചന

ഭീതിയിലാക്കുന്ന ഇത്തരം വൃാജ് പ്രൂചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുണ്ടാണ് ഈ മഹാമാരിയുടെ സമയത്ത് ആരോഗ്യ വകുപ്പിന്റെ ഒയ്ട്ട്ട്ടോഗിക സ്ഥിരീകരണമില്ലാതെ ഇത്തരം വാർത്തകൾ നൽകരുത്തെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

ശിവശങ്കറിനെ എൻ ഐ

സെക്രട്ടേറിയറ്റിലെ സി സി ടിവി ദൃശ്യങ്ങൾ അന്വേഷണസംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കേസിന്റെ ധആര്ഡമിക ഉത്തരവാദിത്തം ് ഏറ്റെടുത്ത് മുഖ്യമമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ

രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ബി ജെ

മൈക് റെയാൻ അഭിപ്രായപ്പെട്ടു

മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം കുൽഭൂഷന് നയതന്ത്രസഹായം നിഷേധിക്കുകയും കേസുമായി ബന്ധപ്പെട്ട് മതിയായ രേഖകൾ സമർപ്പിക്കാതിരിക്കുകയും വഴി പാകിസ്ഥാന്റെ നിലപാട് വൃക്തമായിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു

രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ ലേല ഇടപാടുകളിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി